ലീ ഷിയൻ ലുങ്മായി വിവിധ പ്രിഷയങ്ങളിൽ ഉഭയകക്ഷിതല ചർച്ച നടത്തിക്കു ഇരു രാജ്യങ്ങളും എട്ട് കരാറുകളിൽ ഒപ്പുവച്ചു

പ്രധാനമന്ത്രി ആവാസ് പദ്ധതിക്ക് കീഴിൽ ന് നഗരങ്ങളിലെ പാവപ്പെട്ടവർക്ക് ഒന്നര ലക്ഷം വീടുകൾ നിർമ്മിച്ച് നൽകുന്നതിന് കേന്ദ്ര അനുമതി

മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു

സാമ്പത്തിക സേവനങ്ങൾ പൊതുഭരണം സൈബർ സുരക്ഷ മയക്ക് മരുന്ന് കടത്ത് തടയുക തുടങ്ങി വിവിധ മേഖലകളിൽ സഹകരണം ഉറപ്പിക്കാൻ ഇരുരാജൃങ്ങളും എട്ടോളം കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഉഭയ കക്ഷി ബന്ധം ഒപ്പുവച്ചു വിലയിരുത്തിയതായും ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ ഒരു മാർഗ്ഗരേഖ തയ്യാറാക്കാൻ തീരുമാനിച്ചതായും ചർച്ചകൾക്ക് ശേഷം സംയുക്ത പ്രസ്താവനയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു കഴിഞ്ഞ ഉഭയകക്ഷി ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ് വന്ന സമഗ്രമായ സാമ്പത്തിക സഹകരണം ഇരു നേതാക്കളും അവലോകനം നടത്തി

ഇരു തരാജ്യങ്ങളും തമ്മിലുള്ള വ്യോമബന്ധം മെച്ചപ്പെടുത്താൻ വ്യോമ സേവന ഉടമ്പടിയും പുനരവലോകനം ചെയ്യുമെന്നും ശ്രീ മോദി അറിയിച്ചു സൈബർ സുരക്ഷ തീവ്രവാദം ഭീകരവാദം ഇവ ഉയർത്തുന്ന വെല്ലുവിളികളിൻമേൽ ഇരു രാജ്യങ്ങളും ഉത്കണ്ഠ പ്രകടിപ്പിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു ദക്ഷിണ പൂർവേഷ്യൻ വിപണിയിൽ ചുവടുറപ്പിക്കാൻ സിംഗപ്പൂർ ഇന്ത്യയ്ക്ക് മാർഗ്ഗം തുറക്കുമെന്ന് സിംഗപ്പൂർ പ്രധാനമന്ത്രി ലീ ഷിയൻ ലുങ് അറിയിച്ചു രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സിംഗപ്പൂർ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയായ ഇസ്താനിൽ ആചാരപരമായ വരവേൽപ് നൽകി ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ മൂന്നാമത്തെയും അവസാനത്തേയും പാദത്തിൽ സിംഗപ്പൂരിൽ എത്തിയ ശ്രീ മോദി സിംഗപ്പൂർ പ്രസിഡന്റ് ഹലിമ യാക്കൂബുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും

എന്നാൽ പദ്ധതിയുടെ ഗുണഭോക്താക്കൾക്ക് ഇത് ശരിയാംവണ്ണം ലഭ്യമാക്കാൻ പല സംസ്ഥാനങ്ങൾക്കും കഴിഞ്ഞില്ലെന്ന കടെ ത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഗവൺമെന്റിതര സംഘടന പരമോന്നത കോടതിയിൽ ഹർജി സമർപ്പിച്ചത് ജസ്റ്റിസുമാരായ കുര്യൻ ജോസഫ് എം

വിഷയത്തിൽ കൈക്കൊ നടപടിയെ കുറിച്ച് എത്രയും വേഗം റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി ഉത്തരവിട്ടു കേസിന്റെ അടുത്ത വാദം കേൾക്കുന്നത് ആഗസ്ത് എട്ടിലേക്ക് മാറ്റി ന്യൂസ് ഡെസ്ക് ആകാശവാണി

പദ്ധതിയിൻ കീഴിൽ ഇതുവരെ വിവിധ സംസ്ഥാനങ്ങളിൽ നാല്പത്തേഴര ലക്ഷത്തിലേറെ വീടുകളാണ് കേന്ദ്രം അനുവദിച്ചിട്ടുള്ളത്

പഞ്ചാബിൽ നിന്നും ഹുസൂർ സാഹിബ് ഗുരുദ്ധാരയിലേക്ക് പോവുകയായിരുന്ന ജീപ്പിൽ അമിതവേഗതയിൽ വന്ന് ട്രക്ക് ഇടിക്കുകയായിരുന്നുവെന്ന് പൊലീസ് അറിയിച്ചു

പഞ്ചാബ് ഹരിയാന എന്നീ സംസ്ഥാനങ്ങളാണ് ഈ പദ്ധതി കൂടുതൽ മികച്ച രീതിയിൽ നടപ്പാക്കിയതെന്നും മന്ത്രി ആകാശവാണിക്ക് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞു ബലാൽസംഗ കേസുകളുമായി ബന്ധപ്പെട്ട് അന്വേഷണം കൂടുതൽ കാര്യക്ഷമമാക്കാൻ എല്ലാ പൊലീസ് സ്റ്റേഷനുകളിലും ആശുപിത്രികളിലും സഹായക കിറ്റുകൾ വിതരണം ചെയ്യുമെന്നും മൃത്തി കൂട്ടിച്ചേർത്തു

സമൂഹത്തിൽ ഉച്ചനീചത്വങ്ങളില്ലാത്ത ഒരു തലമുറയെ സൃഷ്ടിക്കാൻ കഴിയുന്നത് പൊതുവിദ്യാലയങ്ങൾക്ക് മാത്രമാണ്

തിരുവനന്തപുരം നെടുമങ്ങാട്ട് സംസ്ഥാനതല സ്കൂൾ പ്രവേശനോൽസവത്തിന്റെ ഉദ്ഘാടനം നിർവ്വഹിക്കുകയായിരുന്നു അദ്ദേഹം ജാതിമത സമുദായ ചിന്തകൾക്ക് സ്ഥാനമില്ലാത്തതാണ് ഇവിടത്തെ വിദ്യാഭ്യാസ പദ്ധതികളെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

നിപാ വൈറസ് ബാധയെ തുടർന്ന് കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ സ്കൂൾ തുറക്കുന്നത് നീട്ടിവച്ചിട്ടു ്

കേരളത്തിൽ നിപ വൈറസ് പകർച്ചയുടെ പശ്ചാത്തലത്തിലാണിത് ഈന്തപ്പഴം മരങ്ങളിൽ നിന്ന് വീണു കിടക്കുന്ന മാമ്പഴം എന്നിവ കഴിക്കുന്നത് ഒഴിവാക്കണം വൈറൽ പനിയോടൊപ്പം കഴുത്ത് തിരിക്കാൻ കഴിയാത്ത അവസ്ഥ എന്നീ ലക്ഷണങ്ങൾ ക ാൽ എത്രയും വേഗം ചികിൽസ തേടണം എന്നാൽ ഡൽഹിയിൽ ഇതുവരെ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും ഗവൺമെന്റ് വൃക്തമാക്കി

റിസർവേഷൻ കൌ റുകളിൽ നിന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്ക് ബദൽ ട്രെയിൻ ബുക്കിംഗ് സൌകര്യമായ വികൽപ്പ് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്നതിനുവേ വിശദാംശങ്ങളുമായി സുനീഷ്

ലഭ്യമായിട്ടുള്ള സീറ്റുകൾ പരമാവധി വെയ്റ്റിംഗ് ലിസ്റ്റിലുളള യാത്രക്കാർക്കും ഉറപ്പാക്കാൻ ഇതുവഴി സാധിക്കും

ബദൽ ട്രെയിനുകളിൽ വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള യാത്രക്കാർക്ക് പദ്ധതി വഴി ടിക്കറ്റ് ഉറപ്പാക്കിയിരുന്നു പുതുക്കിയ പദ്ധതി പ്രകാരം യാത്രക്കാർക്ക് വികൽപ്പ് ഉപയോഗപ്പെടുത്താനോ വേ ന്ന് വയ്ക്കാനോ കഴിയും

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ആന്ധ്രാപ്രദേശിൽ ഇന്നലെ രാത്രി ഇടിയോടുകൂടിയ പേമാരിയിൽ ഏഴ് പേർ കൊല്ലപ്പെട്ടു മൂന്ന് പ്പേർക്ക് പരിക്ക് റിപ്പോർട്ട് ചെയ്തിട്ടു ് നരസറാവുപെട്ട സ്ത്രീന്പള്ളി പിറങ്കിപുരം മുപ്പല്ല ഗു ൂർ ജില്ലയിലെ മ ത്ർ എന്നിവിടങ്ങളിലാണ് ആളുകൾ മരണമടഞ്ഞത്

യൂറോപ്യൻ യൂണിയൻ കാനഡ മെക്സിക്കോ എന്നിവയ്ക്കെതിരെ ലോഹ ചുങ്കം ചുമത്തിയ അമേരിക്കയുടെ നടപടി ഖേദകരമാണെന്ന് ഐ എം എഫ് വക്താവ് ജെറി റൈസ് വാഷിംഗ്ടണിൽ വിവരിച്ചു